പരീക്ഷിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്

ഉപഗ്രഹത്തെ ആക്രമിച്ച് വീഴ്ത്തുന്നതിൽ ഇന്ത്യ മൂന്ന് മിനിറ്റിനുളളിൽ ലക്ഷ്യം കണ്ടതായി അല്പസമയം മുമ്പ് രാഷ്ട്രത്തോട് നടത്തിയ അഭിസംബോധനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു മിഷൻ ശക്തി എന്ന് നാമകരണം ചെയ്ത പദ്ധതിയിലൂടെ ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജൃമാണ് ഇന്തൃയെന്ന് ശ്രീ

ഇത് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്ര രംഗത്തെ ഒരു നാഴിക കല്ലാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി

ആന്ധ്രപ്രദേശ് അരുണാചൽപ്രദേശ് ഗുജറാത്ത കർണാടക നാഗാലാൻഡ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് പ്രത്യേക നിരീക്ഷകരെ നിയോഗിച്ചത്

ആദായ നികുതി ഇൻവെസ്റ്റിഗേഷൻ മുൻ ഡയറക്ടർ ജനറൽ ഡി

പ്രത്യേക നിരീക്ഷകർ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിക്കും

എ മാർ ബിജെപിയിൽ ചേർന്നു

മനോഹർ അജ്ഗവോൺകർ ദീപക് പവൻസ്കർ എന്നീ എം എൽ എ മാരാണ് എം

വിട്ട് ബിജെപിയിൽ ചേർന്നത്

എൽ

ഇതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും

സികളിലേക്ക് വെള്ളിയാഴ്ച നടന്ന തെരഞ്ഞെപ്പിൽ കോൺഗ്രസിനും ഇടതുപാർട്ടികൾക്കും വിജയം ഇന്ന് രാവിലെയാണ് ഫലം പുറത്തു വന്നത്

ഗ്രാമീണ മേഖലയിലെ പോളിംഗ് ബൂത്തുകൾക്കും പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഗുപേത്ശ്വർ പാണ്ഡെ പറഞ്ഞു

ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കാൻ കോൺഗ്രസിന് യഥാർത്ഥ വിഷയങ്ങൾ ഒന്നും ഇല്ലെന്ന് ശ്രീ

ഇന്നലെ കോൺഗ്രസ് നേതാക്കളായ ഗുലാം നബി ആസാദ് കപിൽ സിബൻ എന്നിവർ വാർത്താസമ്മേളനത്തിലാണ് ഒളിക്യാമറ ദൃശ്യം പുറത്ത് വിട്ടത് നോട്ടു പിൻവലിക്ക്ലിലൂടെ ബിജെപി സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നാണ്ട് ആരോപണം

തീവ്രവാദത്തെ വളർത്തു്കും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവർക്കെതിരെ ലോകം ശക്തമായ നടപടികൾ എടുക്കണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും അവരുടെ ക്ഷേമത്തിനുമായി എല്ലാ നടപടികളും ഇന്ത്യ കൈക്കൊള്ളുന്നുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു ആഗോള വളർച്ചയ്ക്കുള്ള പ്രധാന ഘടകങ്ങളിൽ ഒന്നായി ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ മാറിയിട്ടുണ്ടെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു ക്രൊയേഷ്യ ബൊളീവിയ ചിലി എന്നീ രാഷ്ട്രങ്ങളിലെ സന്ദർശനത്തിന്റെ ആദ്യ പാദത്തിലാണ് രാഷ്ട്രപതി ക്രൊയേഷ്യയിലെത്തിയത്

ആറിൽ രേഖപ്പെടുത്താനോ സൂചിപ്പിക്കാനോ പാടില്ലെന്നാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവ് ഇത് സംബന്ധിച്ച് പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളോടും കേന്ദ്ര ഭരണ പ്രദേശമായ ചാണ്ഡീഗഢിനോടുമാണ് ഹൈക്കോടതി നിർദ്ദേശം അന്തസ് കാത്തുസൂക്ഷിക്കാനുള്ള അവകാശം മനുഷ്യാവകാശത്തിന്റെ അടിസ്ഥാനമാണെന്ന് ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു ഒരു കൊലപാതക കേസിൽ ഹരിയാന പോലീസ് കുറ്റാരോപിതന്റെ ജാതി പരാമർശിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഇരു സംസ്ഥാനങ്ങളുടെ ആഭ്യന്തര സെക്രട്ടറിമാരോടും ചാണ്ഡിഗഡ് ഭരണകൂടത്തോടും ആവശ്യമായ നിർദേശങ്ങൾ പുറപ്പെടുവിക്കാനും ഹൈക്കോടതി ആവശ്യപ്പെട്ടു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

നവാസ് ഷെരീഫിന്റെ ആരോഗ്യനില സംബന്ധിച്ച് മെഡിക്കൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ആറ് ആഴ്ചത്തേക്ക് കോടതി ജാമ്യം അനുവദിച്ചത്

ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ ജഡ്ജിമാരുടെ ബഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്

പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ വിവാദ പ്രസ്താവനയെ തുടർന്നാണ് നടപടി അഫ്ഗാനിൽ ഇടക്കാല ഗവൺമെന്റ് രൂപികരിക്കണമെന്ന പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പ്രസ്താവനയിൽ പ്രതിക്ഷേധിച്ചാണ് സ്ഥാനപതിയെ തിരിച്ച് വിളിച്ചത് പ്രസ്താവന നിരുത്തരവാദപരമാണെന്ന് അഫ്ഗാൻ വക്താവ് സിബ്ഗത്തുള്ള അഹമ്മദി പറഞ്ഞു അഫ്ഗാൻ ഗവൺമെന്റും താലിബാനുമായുള്ള സമാധാന ചർച്ചകളെ ദോഷകരമായി ബാധിക്കാൻ ഇമ്രാൻഖാന്റെ പ്രസ്താവന ഇടയാക്കുമെന്ന് ചർച്ചകൾക്ക് മാധ്യസ്ഥം വഹിക്കുന്ന യു

പ്രതിനിധി സൽമായ് ഖാലിസാദ് അഭിപ്രായപ്പെട്ടു

യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡപ്യൂട്ടി വക്താവ് റോബർട്ട് പലാഡിനോയുടെ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം വിശദീകരിച്ചത് ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷാ പങ്കാളികളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് വിശദീകരിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം വർധിക്കുന്നതായും വ്യക്തമാക്കി

കഴിഞ്ഞ രാത്രി ന്യൂഡൽഹിയിൽ നടന്ന മത്സർത്തിൽ ചെന്നൈ സൂപ്പർ കിംഗ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു

ഇതോടെ ഏഴ് പോയിന്റുമായി ഇന്തൃ ദക്ഷിണ കൊറിയയ്ക്കൊപ്പം പട്ടികയിൽ ഒന്നാമത് എത്തി

ഇന്ന് നടക്കുന്ന മത്സരത്തിൽ പോളണ്ട് ജപ്പാനെയും കൊറിയ മലേഷ്യയെയും നേരിടും